അഹമ്മദാബാദ് മെട്രോ റെയിൽ രണ്ടാം ഘട്ടത്തിനും സൂററ്റ് മെട്രോ പദ്ധതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ്ബംഗാൾ മത്സരം

അഹമ്മദാബാദ് സൂററ്റ് നഗരങ്ങ്ളൂട്ട്ട് ഗതാഗത സൌകര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകൃാൻ ഈ രണ്ട് പദ്ധതികളും സഹായിക്കുമെന്നും ഇത് ഏക്ക്ക് ഭാരതിന് കരുത്തേകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഔഷ്ട്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവപ്രത് മുഖ്യമന്ത്രി വിജയ് റൂപാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് രണ്ട് പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുള്ളത്

കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണ്ണാടക അരുണാചൽ പ്രദേശ് മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് കുത്തിവയ്പ്പ് നടത്തിയത്

വോയിസ് കർണാടകയിൽ ഇന്ന് മുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തും

സർക്കാർ ആശുപത്രികളിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകൽ ഇന്ന് പുനരാരംഭിക്കും

ബീഹാറിൽ കോവിഡ് പ്രത്യിര്യോധ കുത്തിവെയ്പ് ഇന്ന് മുതൽ എല്ലാ ആഴ്ചയും നാല് ദിവസ്മങ്ങ്ളിലായി നടത്തും തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് പ്രതിരോധ കൂത്തിവെയ്പ് നടത്തുക

ഒഡീഷയിൽ കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ് ഇന്ന് പുനരാരംഭിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

്ർണ്ടരക്കോടിയോളം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്

ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ്ബാധ രൂക്ഷമായി തുടരുകയാണ്

ഉദുമ എം

കുഞ്ഞിരാമൻ കാസർകോട് ആലക്കോട് വാർഡിലെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതായ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് എന്നാൽ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുള്ള കാര്യമാണെന്നും സഭയിൽ ഉന്നയിക്കുന്നത് യുക്തമല്ലെന്നും വൃക്തമാക്കിയ സ്പീക്കുള്ള പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു സ്പീക്കറുടെ നടപട്ടിയിൽ ് പ്രതിഷേധിച്ച് സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം പിന്നീട് വിഷയം സഭയിൽ ഉപക്ഷേപമായി ഉന്നയിച്ചു

നാളെ നടക്കുന്ന അടുത്ത വട്ടം ചർച്ചയിൽ ബില്ലിലെ ഓരോ വ്യവസ്ഥയും ആഴത്തിൽ ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു

മണ്ഡി വ്യാപാരി രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളിൽ കർഷകരുടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശവും ശ്രീ നരേന്ദ്ര സിംഗ് തോമർ കർഷക സംഘടനകൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്

നിലവിലെ മിനിമം താങ്ങുവില അടിസ്ഥാനമാക്കിയുള്ള നെല്ല് സംഭരണം തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി

ക്സാസ്സുകൾ നടത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്

രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്തൃ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നാല് റൺസ് എടുത്തു

എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

ഇന്നലെ നടന്ന മത്സരങ്ങളിൽ നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂരിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി അതേസമയം ഗോവ എ

മുംബൈ സിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത്